മഹാ ദൂർഗ്ഗാഷ്ടമി രാജ്യമെങ്ങും ആഘോഷിക്കുന്നു

ഇതിനുള്ള ധാരണാപത്രം ന്യൂഡൽഹിയിൽ ഇന്നലെ ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രപ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ നടത്തിയ ചർച്ചകളെതുടർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് തീര റഡാർ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിനെയും നിരീക്ഷണത്തിന് സംയുക്ത പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനേയും ഇരു പ്രധാനമന്ത്രിമാരും സ്വാഗതം ചെയ്തു സമുദ്ര മേഖലയിൽ വർധിച്ചുവരുന്ന ഭീകര പ്രവർത്തനം ഇല്ലാതാക്കാൻ ഇത്സഹായകമാകും ഛത്തോഗ്രാംമോഗ്ള എന്നീ തുറമുഖങ്ങളുടെ ഉപയോഗത്തിനുള്ള നടപടി ക്രമം സംബന്ധിച്ചും ഇന്ത്യയും ബംഗ്ലാദേശും ധാരണാ പത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് മൂന്ന്ഇന്ത്യാ ബംഗ്ലാദേശ് സംയുക്ത പദ്ധതികൾക്കും തുടക്കമായി

കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബാങ്കിന്റെ മുൻ എം

എല്ലിന് അനധികൃത വായ്പ നൽകിയതും വ്യാജ അക്കൌണ്ടുകൾ വഴി പണം കൈമാറിയതിനുമാണ് കേസ്

ന്യൂഡൽഹിയിൽ ചേർന്ന വാണിജ്യ മന്ത്രാലയത്തിൻ കീഴിലുള്ള ബോർഡ്യോഗമാണ് അനുമതി നൽകിയത് സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം

പദ്ധതിയിൻകീഴിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായം ഉല്പന്നങ്ങൾ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് മുള തുടങ്ങിയവ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്

ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന വർക്കെതിരെ മോട്ടോർ വാഹന നിയമത്തോടൊപ്പം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും നടപടികളെടുക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു കൂടുതൽ വിരങ്ങളുമായി സുരേഷ്

വർധിച്ചുവരുന്ന റോഡപകട്ട്ട്ട്ട് രാജ്യത്തിന് വലിയ ബാധ്യതയാണ് വരുത്തുന്നത് ഇതു സംബിഫ്ഫിച്ച് ഗുവാഹത്തി ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനത്തെ തുടർന്നുള്ള അപകടങ്ങളുടെ ഗുരുതര സ്വഭാവം ഗൌരവമായാണ് കാണേണ്ടതെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു നിയമ ലംഘനങ്ങളെ തുടർന്നുള്ള അപകടങ്ങൾക്ക് മോട്ടോർ വാഹന നിയമ പ്രകാരം ശിക്ഷാ നടപടി കൈക്കൊണ്ടാൽ മതി എന്ന ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് ശിക്ഷാ നടപടികൾ കുറ്റകൃത്യങ്ങൾ തടയാൻ പര്യാപ്തമാകണമെന്ന് കോടതി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൈസൂർ മുൻ രാജാവ് അന്തരിച്ച ജയ ചാമരാജ വാഡിയാറുടെ നൂറാം ജന്മ വാർഷികാഘോഷം ശ്രീ

നഞ്ചൻഗൂഡ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും

വാർത്താ ഏജൻസിക്കു നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്

വിവിധവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പ്രശ്നങ്ങളും സജീവമാണ്

മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരും ദിവസങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും

കുറയ്ക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ശാസ്ത്ര ഷൂവസായ ഗവേഷണ കൌൺസിൽ പ്രത്യേക തരം പടക്ക ഉൽപ്പന്നുങ്ങൾ വികസിപ്പിച്ചു

മിതമായ വിലയ്ക്ക് ഇവ വിപണിയിൽ ലഭ്യമാണെന്ന് മന്ത്രി പറഞ്ഞു സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഹരിത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ പടക്കങ്ങൾ നിർമ്മിച്ചത്

സുരേഷ് വോയിസ് ദുർഗാദേവിയുടെ ഒൻപതി സ്ക്യത്യസ്ത രൂപങ്ങളെയാണ് ആരാധിക്കുന്നത്

അഷ്ടമിദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും നടന്നു കേരളത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും പുസ്തകങ്ങളും തൊഴിൽ ഉപകരണങ്ങളും പൂജയ്ക്ക്വയ്ക്കും നാളെ മഹാനവമിക്കുശേഷം വിജയദശമി ദിനമായ മറ്റന്നാൾ രാവിലെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും വിവിധ ക്ഷേത്രങ്ങളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പുരോഗമി ക്കുന്നു മഹാദുർഗ്ഗാഷ്ടമി പ്രമാണിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമാണ്ദുർഗ്ഗാ പൂജയുടെ സന്ദേശമെന്നും സത്യവും നീതിയും എക്കാലവും നിലനിൽക്കുമെന്നും രാഷ്ട്രപതി രാംനാഥ്കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു ദുർഗ്ഗാപൂജ ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ പറഞ്ഞു

ഇതു സംബന്ധിച്ച് ചർച്ചയ്ക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്കൂശേഷം യോഗം ചേരും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ചേരുന്നു യ്യോഗത്തിൽ ജില്ലാ കളക്ടർ ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനായി പ്രാചൂമത്ലപ്പെടുത്തിയ സബ്കളക്ടർ എന്നിവരും ഉദ്യോഗസ്ഥരും പ്പങ്കെടുക്കും ഫ്ളാറ്റിലെ താമസക്കാർ ഒഴിഞ്ഞുപോയിട്ടുണ്ട് പൊളിക്കാ്നുള്ള കമ്പനിയെ തെരഞ്ഞെടുക്കുന്നതും സമീപത്തെ താമസക്കാര്ട്ട് ഒഴിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയാവും

പിയും കോട്ടയം വിദ്യാഭ്യാസ ഉപ ഓഫീസറുമായും അന്വേഷണം നടത്തി നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു പാലാ ഹയർസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഫീൽ ജോൺസണാണ് അപകടത്തിനിരയായത്

ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞമാസമാണ് കേസ് പുനഃരാരംഭിച്ചത്

വിപുലമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയതായി ഖോൻസ എസ്